ത കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഏഷ്യൻ വികസന ബാങ്ക് ഇന്ത്യയ്ക്ക് ഒന്നര ബില്യൻ ഡോളർ വായ്പ അനുവദിച്ചു

വാർത്തകൾ വിശദമായി കേരളത്തിലേക്ക് പ്രവാസികൾ തിരിച്ചെത്തുമ്പോൾ ആവശ്യമായ സജ്ജീകരണങ്ങളും സൌകര്യങ്ങളും ഉറപ്പാക്കാൻ സെക്രട്ടറിതല സമിതി രൂപീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അ ിയിച്ചു

പ്രാഥമിക മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തൃശൂർ ജില്ലകളിലേക്കാണ് കൂടുതൽ പേർ എത്താൻ സാധ്യത കലക്ടർമാരുടെ നേതൃത്വത്തിൽ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക കമ്മറ്റി രൂപീകരിക്കും വിമാനത്താവളങ്ങളിൽ വൈദ്യപരിശോധനാ സൌകര്യം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രോഗലക്ഷണമില്ലാത്തവരെ വീടുകളിലായിരിക്കും ക്വാറന്റൈൻ ചെയ്യുക പൊലീസ് നിരീക്ഷണത്തിൽ ആയിരിക്കും ഇവരെ വിമാനത്താവളത്തിൽ നിന്ന് വീടുകളിലേക്ക് അയക്കുന്നത്

വീടുകളിൽ ക്വാറന്റൈൻ സാധ്യമല്ലാത്തവർക്ക് ഗവൺമെന്റ് ഒരുക്കുന്ന സ്ഥലങ്ങളിൽ ക്വാറന്റൈനിൽ കഴിയാം കപ്പൽ വഴി പ്രവാസികളെ കൊണ്ടുവന്നാൽ തുറുമുഖങ്ങൾ കേന്ദ്രീകരിച്ച് സജ്ജീകരണം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

കണ്ണൂർ ജില്ലയിൽ മൂന്ന് പേർക്കും കാസർകോട് ജില്ലയിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് നാലുപേർ ഇന്നലെ രോഗം മാറി വീട്ടിലേക്ക് മടങ്ങി

ഇടുക്കി ജില്ലയിലെ കരുണാപുരം മൂന്നാർ ഇടവെട്ടി കോട്ടയം ജില്ലയിലെ മേലുകാവ് ചങ്ങനാശേരി മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലയിലെ കാലടി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്നിവയാണ് പുതിയ ഹോട്സ്പോട്ടുകൾ സംസ്ഥാനത്തെ മൊത്തം ഹോട്സ്പോട്ടുകളുടെ എണ്ണം ഇതോടെ നൂറായി രേര കോട്ടയം ഇടുക്കി ജില്ലകളെ റെഡ് സോണായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ജില്ലാ അതിർത്തികളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഇടുക്കി ജില്ലയിൽ ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യം ഗുരുതരമാണെന്നും നിയന്ത്രണങ്ങൾ കടുപ്പിക്കാതെ തരമില്ലെന്നും മന്ത്രി എം

ജില്ലയിൽ സാമ്പിൾ പരിശോധനാ സംവിധാനം ഇല്ലാത്തത് ബുദ്ധിമുട്ടാവുന്നതായി യോഗം വിലയിരുത്തി റെഡ് സോണായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ജില്ലാ സംസ്ഥാന അതിർത്തികളിൽ വൻതോതിൽ പൊലീസ് സന്നാഹം ഏർപ്പെടുത്തി തമിഴ്നാട് അതിർത്തി പൂർണമായി അടച്ചു

രണ്ട് മുതിർന്ന ഐപിഎസ് ഓഫീസർമാരെ ജില്ലയിലെ ക്രമീകരണങ്ങളുടെ മേൽനോട്ടത്തിനായി നിയോഗിച്ചു തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ രോഗം പടരുന്ന സാഹചര്യത്തിൽ പെരിയാർ കടുവ സങ്കേതത്തിന്റെ സമീപ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കി

ഇന്നലെ പുതിയ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കോട്ടയം ജില്ലയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കി ജില്ലയിലേക്കും പുറത്തേക്കും യാത്രകൾ പൂർണമായി നിരോധിച്ചു രോഗബാധിത മേഖലകളിൽ ജനങ്ങൾ പുറത്തിറങ്ങുന്നതും നിരോധിച്ചിരിക്കയാണ് സമൂഹ വ്യാപന സാധ്യതപരിശോധിക്കുന്നതിന് ജില്ലയിൽ റാൻഡം പരിശോധന തുടങ്ങി

രുമ കണ്ണൂരിൽ ഇന്നലെ കോവിസ് സ്ഥിരീകരിച്ച മൂന്നു പേരിൽ രണ്ടു പേർ വിദേശത്തു നിന്ന് എത്തിയവരാണ്

ശശിധരൻ

സുരേഷ് ബാബു

കാരാകുറിശി പഞ്ചായത്തിനെ ഹോട്സ്പോട്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ജില്ലയിൽ എട്ട് ഹോട്സ്പോട്ടുകളാണ് ശേഷിക്കുന്നത് അതിർത്തിയിലെ നിരീക്ഷണം ശക്തമാക്കാൻ വാളയാറിൽ രണ്ട് ക്യാമറകൾ സ്ഥാപിച്ചു

ഹോട്സ്പോട്ട് മേഖലയിൽ താമസിക്കുന്ന ഗർഭിണികൾ കൊറോണ സ്രവ പരിശോധന നടത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദേശിച്ചു

ജില്ലയിലെ കോവിഡ് കാല ഇളവുകൾ ഹോട്സ്പോട്ട് ഒഴികെ ഇടങ്ങളിൽ മാത്രമായിരിക്കും ബാധകമാകുന്നതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു

രുമ കൊറോണ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഏഷ്യൻ വികസന ബാങ്ക് ഇന്ത്യക്ക് ഒന്നര ബില്യൺ ഡോളർ വായ്പ അനുവദിച്ചു രോഗ നിയന്ത്രണം പ്രതിരോധം സാമൂഹ്യ സുരക്ഷ എന്നീ മേഖലകൾക്കാണ് തുക അനുവദിച്ചത് ഗവൺമെന്റുമായും വികസന പങ്കാളികളുമായും ഏകോപനത്തോടെ മറ്റ് കാലതാമസമില്ലാതെ തുകയുടെ വിനിയോഗം സാധ്യമാക്കും രുമ അന്തർ സംസ്ഥാന ചരക്ക് നീക്കം സുഗമമാക്കാൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടിയന്തര കർമ്മ പരിപാടി ആവിഷ്ക്കരിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു അവശ്യ സാധന വിതരണം തടസ്സപ്പെടാതിരിക്കാൻ സംസ്ഥാന അതിർത്തികളിലെ കാലതാമസം ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരി സംസ്ഥാന ഗതാഗത മന്ത്രിമാരുമായി ഇന്നലെ നടത്തിയ വീഡിയോ കോൺഫറൻസിങ്ങിൽ നിർദേശം നൽകി

മറ്റ് സംസ്ഥാനങ്ങളിൽ ചികിത്സാ ആവശ്യങ്ങൾക്ക് പോയവർ കേരളത്തിലെ ചികിത്സയ്ക്ക് തീയതി ലഭിച്ചവർ പഠനം പൂർത്തീകരിച്ചവർ വിദ്യാർത്ഥികൾ പരീക്ഷ ഇന്റർവ്യൂ തീർത്ഥാടനം വിനോദയാത്ര എന്നിവയ്ക്ക് പോയവർ ജോലി നഷ്ടപ്പെട്ടവർ വിരമിച്ചവർ കൃഷി ആവശ്യത്തിന് പോയവർ തുടങ്ങിയവർക്ക് നോർക്കയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്

രുമ സാലറി ചലഞ്ചിൽ ഹൈക്കോടതി സ്റ്റേ ഗവൺമെന്റിനേറ്റ തിരിച്ചടിയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു

ഗവൺമെന്റ് നിയമപരമായല്ല കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നതിന്റെ തെളിവുകൂടിയാണ് കോടതി നിർദ്ദേശങ്ങളെന്ന് സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു